മുന്നിൽക്കണ്ട് വാക്സിൻ നൽകുന്നത് ത്വരിതപ്പെടുത്താൻ നിർദേശം നൽകി മന്ത്രി കെകെ ശൈലജ

ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് കൂറ്റൻ സ്കോർ

അസമില്ലെ ദേശീയപാതയും ജില്ലാ റോഡ് ശൃംഖലകളും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ബൃഹത് പദ്ധതിക്കാണ് പ്രധാനമൃത്തി തുടക്കമിട്ടത്

മൂന്നാഴ്ചയ്ക്കിടയിൽ രണ്ടാം വട്ടമാണ് പ്രധാനമന്ത്രി അസം സന്ദർശിക്കുന്നത്

ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ എൽപിജി ഇറക്കുമതി ടെർമിനൽ ഗെയ്ലിന്റെ ഡോബി ദുർഗാപൂർ പ്രകൃതി വാതക പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റാനിചക്കിലെ നാലുവരി മേൽപ്പാത തുടങ്ങിയവയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്നാഴ്ചയ്ക്കിടയിൽ രണ്ടാംവട്ടമാണ് പ്രധാമന്ത്രി ബംഗാളിലെത്തുന്നത്

ഇന്ന് രാവിലെ അസം സന്ദർശിച്ച പ്രധാനമന്ത്രി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു

ഗവർണർ വാജൂഭായ് വാല മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോ

പ്രശസ്ത ന്യൂറോ സർജൻ ഡോ അലങ്കർ സത്യരജ്ഞൻ ദാസ് ഹെഗ്ഡേയ്ക്ക് ചടങ്ങിൽ പ്പ്പ് ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം നൽകും

പൂനെയിലെ റീജിയണൽ ഔട്ട് റീച്ച് ബ്യൂറോ സംഘടിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച അവബോധ പ്രചാരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

അതേസമയം കോവിഡ് പ്രതിരോധ ക്രിക്കുത്തിവെപ്പ് നൽകുന്നത് ത്വരിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സ്ംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും ആവശ്യ്പ്പെട്ടു

കുത്തിവെപ്പിനെതുടർന്ന് ആർക്കും ഗുരുതര ആരോഗ്യപ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം കോവിഡ് വാക്സിൻ നൽകുന്നത് ത്വരിതപ്പെടുത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദേശിച്ചു ഓരോ വിഭാഗത്തിലും പരമാവധി പേർക്ക് വാക്സിൻ നൽകണമെന്ന് സംസ്ഥാനങ്ങളിലെ ആരോഗ്യസെക്രട്ടറി മാരുമായും ദേശീയ ആരോഗൃ ദൌതൃം എം ഡി മാരുമായും നടത്തിയ വാക്സിനേഷൻ അവലോകന യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി നിർദേശിച്ചു

കോവിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാക്സിൻ നൽകിയെന്ന് ഉറപ്പുവരുത്താനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി നിർദ്ദേശിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി എം

കോവിഡ് വാക്സിൻ് സ്പ്രീകരിക്കുന്നതിനായി കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വാക്സിനെടുക്കുന്നതിനുള്ള തീയതി സ്ഥലം എന്നിവയടങ്ങുന്ന മൊബ്ബൈൽ സന്ദേശത്തിനനുസരിച്ച് വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് അന്നേ ദിവസം കുത്തിവയ്പ്പ് എടുക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള അസൌകര്യമുണ്ടെങ്കിൽ ആ വിവരം വാക്സിനേഷൻ കേന്ദ്രത്തിൽ മുൻകൂട്ടി അറിയിക്കണം രണ്ടാംഘട്ട വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ആരോഗ്യ പ്രവർ ത്തകർ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു

ഒരു കോടി അഞ്ച് ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടിയതായി മന്ത്രാലയം അറിയിച്ചു

ലെഫ്റ്റനന്റ് ഗവർണർ ആർ

എല്ലാ കർമപദ്ധത്രികൾക്കും പരിസ്ഥിതി സൌഹൃദ ലക്ഷ്യങ്ങളും നൽകിയിട്ടുണ്ട്

കശ്മീരിലെ ബിസിനസുകാരനായ ബഹൂർ അഹമദ് ഷാ യു